രോഗ പ്രതിരോധത്തിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ആഹ്വാനം കേരളത്തിൽ കൊറോണാ നിരീക്ഷണം തുട്ടരുമെന്ന് മന്ത്രി കെ

കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും

ള്ള ൽ കൊറോണയുടെ പേരിൽ രാജ്യത്ത് പരിഭ്രാന്തി വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു കൊറോണ വൈറസ് ബാധ പ്രതിരോധിക്കുന്നതിന് രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വരികയാണ് രോഗ ബാധതടയാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു കൊറോണയ്ക്കെതിരായ നടപടികൾ ന്യൂഡൽഹിയിൽ അദ്ദേഹം അവലോകനം ചെയ്തു കാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൂബ വീഡിയോ കോൺഫറൻസിലൂടെ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായും ബന്ധപ്പെട്ട മന്ത്രാലയ സെക്രട്ടറിമാരുമായും സാഹചര്യം വിലയിരുത്തി ആഗോളതലത്തിൽ കൊറോണാ ബാധ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഏതുസാഹചരൃം നേരിടാനും ഗവൺമെന്റ് തയാറാണെന്ന് കേന്ദ്രമന്ത്രി ഡോ

രാജ്യത്തെ കൊറോണാ സാധ്യത മന്ത്രിതല സംഘം നിരീക്ഷിച്ച് വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു നേപ്പാൾ അതിർത്തിയിൽ ഇതുവരെ പത്ത് ലക്ഷത്തിലേറെ പേരെ കൊറോണാ പരിശോധനയ്ക്ക് വിധേയരാക്കി വിമാനത്താവളങ്ങളിൽ അഞ്ച് ലക്ഷത്തിലേറെ ആളുകളെ പരിശോധിച്ചു

കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത മൂന്ന് കൊറോണാ രോഗബാധിതർ വിമുക്തി നേടി ആശുപത്രി വിട്ടതായി അദ്ദേഹം അറിയിച്ചു കൊറോണ പോസിറ്റീവ് ആയി കണ്ടെത്തിയ രണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിലും തെലങ്കാനയിലുമാണ് രോഗ ബാധിതരെ കണ്ടെത്തിയത് സിംഗപ്പൂർ ദക്ഷിണകൊറിയ ഇറാൻ ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്ക് യാത്രകൾ പരമാവധി ഒഴിവാക്കാൻ ഗവൺമെന്റ് കരുതൽ നിർദേശം പുറപ്പെടുവിച്ചു

ഈ രാജൃങ്ങളിലെ പൌരൻമാർക്ക് അനുവദിച്ച വിസ റദ്ദാക്കിയിട്ടുണ്ട്

കൂടുതൽ രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും കൊറോണ റിപ്പോർട്ട് ചെയ്ത സാഹചരൃത്തിൽ കേരളത്തിൽ നിരീക്ഷണം തുടരുമെന്ന് മന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കൊറോണയുടെ ഒന്നാംഘട്ട നിരീക്ഷണം സംസ്ഥാനത്ത് പൂർത്തിയായി രണ്ടാംഘട്ടത്തിലെ നിരീക്ഷണ പദ്ധതി ഇന്നലെ ആരോഗ്യ വകുപ്പ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ ആസൂത്രണം ചെയ്തതായി മന്ത്രി അറിയിച്ചു

രോഗ മേഖലയിൽ നിന്നോ സമീപ പ്രദേശങ്ങളിൽ നിന്നോ എത്തുന്നവർ വിവരം ആരോഗ്യ വകുപ്പിനെ അറിയിക്കണം വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു കൊറോണ സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ മൊബൈൽ ആപ്തിക്കേഷൻ തയാറാക്കുമെന്ന് ആരോഗൃവകുപ്പ് അറിയിച്ചിട്ടുണ്ട് രണ്ടുദിവസത്തിനകം ഇത് പ്രവർത്തന സജ്ജമാകുമെന്ന് ആരോഗൃവകുപ്പ് പ്രിൻസിപ്പൾ സെക്രട്ടറി പറഞ്ഞു

ഇവരിൽ നാലുപേർ ബീച്ച് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണ്

സംസ്ഥാനത്ത് ജനസംഖ്യാ കണക്കെടുപ്പ് മാത്രമായിരിക്കും നടത്തുകയെന്നും ജനസംഖ്യാ രജിസ്റ്ററിന്റെ വിവരശേഖരണം ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി ഇൌ വിഷയങ്ങളിൽ കൂടുതൽ വൃക്തത ആവശ്യമെങ്കിൽ സർവ്വകക്ഷി യോഗത്തിൽ ചർച്ച നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രവികസനത്തിന്റെ ഭാഗമായി മുഴുവൻ വിദ്യാർഥികൾക്കുമായി അക്കാദമിക് മാസ്റ്റർപ്ലാൻ തയാറാക്കി വരികയാണെന്ന് മന്ത്രി സി

പുനലൂർ ഗവ

പി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി പറഞ്ഞു

രാഷ്ട്രപതി ഭവനിലാണ് അവാർഡ്ദാന ചടങ്ങ്

കോഴിക്കോട്ട് ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഈസ്റ്റ് ബംഗാൾ മത്സരം ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു ഇതോടെ പോയിന്റ് നിലയിൽ ഗോകുലം ആറാം സ്ഥാനത്തെത്തി ഈസ്റ്റ് ബംഗാൾ നാലാം സ്ഥാനത്താണ് കോഴിക്കോട്ട് ഫിയാസ്റ്റോ അഖിലേന്ത്യാ ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും ഇന്നലെ ഇന്ത്യൻ ഞ്ചാങ്കും ചെന്നൈ ഐ ഒ ബിയും സെമിയിൽ പ്രവേശിച്ചിരുന്നു വനിതാ വിഭാഗത്തിൽ സൌത്ത് വെസ്റ്റേൺ റെയിൽവേ കേരളാ പൊലിസിനെ പരാജയപ്പെടുത്തി

രണ്ടാം സെമിയിൽ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് മത്സരം അന്താരാഷ്ട്ര വനിതാ വാരാചരണത്തോടനുബന്ധിച്ച് സാമൂഹ്യക്ഷേമ ബോർഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സെമിനാർ മന്ത്രി കെ

സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും ഗാർഹിക പീഡനവും വർത്തമാനകാല

സാഹചര്യത്തിൽ എന്ന വിഷയത്തിൽ വിദ്യാർഥികൾക്കാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്ന് വഴുതക്കാട് ഗവ

കോളേജിലെ വനിതാ വികസന സെല്ലിന്റെ സഹകരണത്തോടെ ഉച്ചയ്ക്ക് രണ്ടിനാണ് പരിപാടി ലിംഗ സമത്പത്തിന് പോരാട്ടം ശക്തമാക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം

ആഗോളതലത്തിൽ തന്നെ സ്ത്രീകളുടെ സാമൂഹ്യപദവിയും അന്തസ്സും ഇടിഞ്ഞു താഴുകയാണെന്ന് അവർ പറഞ്ഞു ഇടുക്കി മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജാഗ്രതാ സമിതി സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ കണ്ണൂർ അഴീക്കലിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പ്രതിവാര ചരക്കു കപ്പൽ സർവ്വീസിന് തുടക്കമായി മാരിടൈം ബോർഡ് ചെയർമാൻ വി

കുമളിയെ മാതൃകാ ശുചിത്വ നഗരമായി പ്രഖ്യാപിച്ചു സമഗ്ര മാലിന്യ സംസ്കരണത്തിലൂടെ കുമളി മുഖ്യമന്ത്രിയുടെ ഹരിത അവാർഡിന് അർഹമായിരുന്നു ജില്ലയിലെ എല്ലാ അംഗനവാടികൾക്കും സ്വന്തം സ്ഥലവും കെട്ടിടവും വൈദ്യുതി കണക്ഷനും ലഭ്യമാക്കുകയെന്ന ലക്ഷ്യം കൈവരിക്കുകയാണ് അടുത്ത ദൌത്യമെന്ന് മാതൃകാ ശുചിത്വ നഗര പ്രഖ്യാപന ചടങ്ങിൽ ജില്ലാ കലക്ടർ പറഞ്ഞു ആലപ്പുഴ ഹരിപ്പാട്ട് റിട്ട

അരൂർ എൽ പി സ്കൂളിലെ റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസായിരുന്നു അവർ

പറമ്പിൽകൂട്ടിയിട്ട ചപ്പുചവറുകൾക്ക് തീയിടാൻ പോയപ്പോൾ തെരുവ്നായ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് മലബാർ ക്രിസ്ത്യൻ കോളജ് വിദ്യാർഥി ജസ്പ്രീത് സിംഗിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് യുവ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് കെ

കോളേജിന്റേയും സർവകലാശാലയുടെയും ഇരട്ടനീതിയുടെ ഇരയാണ് ജസ്പ്രീതെന്നും ഇക്കാര്യത്തിൽ കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അതേസമയം കോളേജിന്റെയോ അധ്യാപകരുടേയോ ഭാഗത്ത് നിന്ന് ഒരുതരത്തിലും ജസ്പ്രീതിനെതിരെ വിവേചന്റ് ഉണ്ടായിട്ടില്ലെന്ന് കോളജ് അധികൃതർ വ്യക്തമാക്കി അന്തേവാസികളുടെ മരണത്തെതുടർന്ന് വിവാദത്തിലായ ചങ്ങനാശേരി തൃക്കൊടിത്താനത്തെ ലഹരിവിമുക്ത മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിന്റെ സാനിട്ടറി ലൈസൻസ് പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് റദ്ദാക്കി

് നിലമ്പൂർ നാടുകാണി ചുരം പാതയുടെ തകർന്ന ഭാഗങ്ങൾ നവീകരികരണവുമായി ബന്ധപ്പെട്ട പഠനത്തിന് ഡൽഹിയിൽ നിന്ന് വിദഗ്ധ ്സംഘമെത്തി നാലു ദിവസം പരിശോധന നടത്തുന്ന സംഘം ഏപ്രിൽ അഞ്ചിനകം ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകും

രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു

ഇന്നലെ രാത്രി ജില്ലയിലെ മിക്ക ഭാഗത്തും മഴ ലഭിച്ചു